ജെ

ഹൂസ്റ്റണിൽ പ്രവാസി ഇന്ത്യക്കാരുമായി സംവദിക്കാൻ സംഘടിപ്പിച്ച ഹൌഡി മോദി പരിപാടിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് പങ്കെടുത്തു റിപ്പബ്ലിക്കൻ നേതാക്കളും ഡെമോ ക്രാറ്റുകളും ഒരേപോലെ ചടങ്ങിനെത്തി

ലോകത്തിന്റെ മുഴു വൻ ശ്രദ്ധയും ഇന്ത്യ നേടിക്കഴിഞ്ഞു പ്രധാനമന്ത്രി പറഞ്ഞു അമേരിക്ക യിൽ ഒരാഴ്ചത്തെ സന്ദർശനം പൂർത്തിയാക്കി ഡൽഹിയിൽ തിരിച്ചെത്തിയ പ്രധാനമന്ത്രി വിമാനത്താവളത്തിലെ സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുക യായിരുന്നു അതിനുശേഷം ഡൽഹിയിൽ റോഡ്ഷോയിലും നരേന്ദ്രമോദി പങ്കെടുത്തു രുട്ട്ട്ട്ട്ട്ട്ട്ട സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടു പ്പിന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നാളെ അവസാനിക്കും

ഡി എ ഫിൽ കോൺഗ്രസ് മത്സരിക്കുന്ന നാല് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ന്യൂഡൽഹിയിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു എറണാകുളത്ത് ടി ജെ വിനോദ് അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ കോന്നിയിൽ പി മോഹൻരാജ് വട്ടിയൂർക്കാവിൽ ഡോക്ടർ കെ മോഹൻകുമാർ എന്നിവരാണ് സ്ഥാനാർത്ഥി കൾ മഞ്ചേശ്വരത്തെ മുസ്ലീംലീഗ് സ്ഥാനാർത്ഥിയെ നേരത്തെ പ്രഖ്യാപിച്ചി രുന്നു

ജെ

എന്നാൽ വട്ടിയൂർക്കാവിൽ കുമ്മനം രാജശേഖരൻ മത്സരിക്കു മെന്ന് മുതിർന്ന നേതാവ് ഒ രാജഗോപാൽ അറിയിച്ചു കെ സുരേന്ദ്രൻ കോന്നി യിൽ മത്സരിച്ചേക്കുമെന്ന് സൂചനയുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നു ണ്ടാകും അതേസമയം സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ച ഇടത് മുന്നണിയുടെ കൺവെൻഷനുകൾ ഇന്നാരംഭിക്കും ദർവ്വെടെ ഒര സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ മരടിലെ വിവാദ ഫ്ളാറ്റു കൾ പൊളിക്കുന്നതിന് മുന്നോടിയായി താമസക്കാരെ ഇന്നുമുതൽ ഒഴിപ്പി ച്ചുതുടങ്ങും അടുത്ത വ്യാഴാഴ്ച വരെയാണ് ഒഴിപ്പിക്കാൻ സമയം അനുവ ദിച്ചിരിക്കുന്നത് ഫ്ളാറ്റുകൾ പൊളിക്കാൻ നിയന്ത്രിത സ്ഫോടനം ഉപയോ ഗിക്കാൻ തീരുമാനിച്ചതായി ഇതിന്റെ ചുമതല വഹിക്കുന്ന ഫോർട്ട് കൊച്ചി സബ് കലക്ടർ സ്നേഹിൽകുമാർ സിംഗ് അറിയിച്ചു ഒഴിഞ്ഞുപോകുന്ന വർക്കായി എറണാകുളം നഗരത്തിൽ അഞ്ഞൂറോളം ഫ്ളാറ്റുകൾ ജില്ലാ ഭര ണകൂടം ്കണ്ടെത്തിയിട്ടുണ്ട് വാടക താമസക്കാർതന്നെ നൽകേണ്ടിവരും അതിനിടെ തീരദേശ പരിപാലന നിയമം ലംഘിച്ച് പണിത ഫ്ളാറ്റ് സമുച്ചയ നിർമ്മാതാക്കളുടെ സ്വത്ത് സുപ്രീംകോടതി കണ്ടുകെട്ടി

പൊളിച്ചുനീക്കുന്ന ഫ്ളാറ്റുകളുടെ ഉടമകൾക്ക് നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജ് കെ ബാല കൃഷ്ണൻ നായരുടെ നേതൃത്വത്തിൽ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട് ദർവ്വെട്ടറ സംസ്ഥാനത്തെ മോഡൽ റസിഡൻഷ്യൽ സ്കൂളുകൾ കോളജുകളാക്കി ഉയർത്താൻ ഗവൺമെന്റ് തീരുമാനിച്ചതായി മന്ത്രി എ കെ ബാലൻ അറിയി ച്ചു

സുപ്രീംകോടതി വിധി അനുസരിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിന് ആരാധന നടത്താൻ മതിയായ സംരക്ഷണം നൽകുന്നതിന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു ഇതേതുടർന്ന് പള്ളിയുടെ നിയന്ത്രണം ജില്ലാ കലക്ടർ ഏറ്റെടുത്തു

ഇതുസംബന്ധിച്ച വിജ്ഞാപനം പ്രത്യക്ഷ നികുതിബോർഡ് പുറ പ്പെടുവിച്ചതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു

ജസ്റ്റിസ് എം വി രമണ യുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചാണ് ഹർജി കൾ പരിഗണിക്കുന്നത്

ഒൻപത് മണിക്കൂർ നീണ്ട ഏറ്റുമുട്ടലിലാണ് ഒസാമയെന്ന കമാന്ററും രണ്ട് അനുയായികളും കൊല്ലപ്പെട്ടത്

ജെ പി ആർ എസ് എസ് നേതാക്കളുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരാണ് മരിച്ച മൂന്നുപേരും ഏറ്റുമുട്ടലിൽ ഒരു സൈനി കൻ വീരമൃത്യു വരിച്ചു

ഇതിന്റെ മല യാള പരിഭാഷ തുടർന്ന് പ്രക്ഷേപണം ചെയ്യും

ആകാശവാണി വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും പരിപാടി തത്സമയം ലഭ്യമാണ്

കോൾമാന്റെ കരിയ റിലെ ഏറ്റവും മികച്ച സമയമാണിത് അമേരിക്കൻ താരവും നിലവിൽ ചാമ്പ്യ നുമായ ജസ്റ്റിൻ ഗാട്ലിനാണ് വെള്ളിമെഡൽ കാനഡയുടെ ആന്ദ്രേ ഡി ഗ്രാസെ മൂന്നാം സ്ഥാനം നേടി

മുഹമ്മദ് അനസ് വി

പുരുഷ വിഭാഗത്തിൽ കേരളം രണ്ടാംസ്ഥാനത്താണ് എട്ട് സ്വർണവും ഏഴ് വെള്ളിയും മൂന്ന് വെങ്കലവും നേടിയ കേരളം പോയിന്റ് നിലവാരത്തിൽ ഒന്നാംസ്ഥാനത്താണ്

എസ് മേനോൻ ജൂനിയർ അന്തരി ച്ചു തിരുവനന്തപുരത്ത് കവടിയാറിലെ വസതിയിൽ ഇന്നലെ രാത്രിയായി രുന്നു തൊണ്ണൂറുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം

ബംഗ്ലാദേശ് ഈജിപ്ത് ജപ്പാൻ ഹംഗ റി ചൈന എന്നീ രാജ്യങ്ങളിലെ സ്ഥാനപതിയായും അദ്ദേഹം പ്രവർത്തിച്ചി ട്ടുണ്ട് ഒറ്റപ്പാലത്തെ കിഴക്കെപാലാട്ട് ശങ്കരമേനോൻ എന്ന കെ

എസ് മേനോൻ ജൂനിയർ ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യ സെക്രട്ടറി കെ

സംസ്കാരം ഉച്ചയ്ക്ക് ഒന്നരക്ക് തൈക്കാട് ശാന്തി കവാടത്തിൽ നടക്കും ദർവ്വെടെട കോഴിക്കോട് താമരശേരി ചുരം റോഡിന്റെ സംരക്ഷണത്തിന് ഉടൻ നട പടിയെടുക്കണമെന്ന് മന്ത്രി ടി

ജില്ലാ വികസനസമിതി യോഗത്തിൽ എട്ടാം വളവി നടുത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ വനഭൂമി വിട്ടുകിട്ടാൻ വൈകുന്നു വെന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോഴാണ് മന്ത്രിയുടെ നിർദ്ദേശം

എച്ച് ആർ ഡിയെ കല്പിത സർവകലാശലായാക്കുന്ന കാര്യം ഗവൺമെന്റിന്റെ പരിഗണനയി ലാണെന്ന് മന്ത്രി കെ ടി ജലീൽ അറിയിച്ചു വൻ ഫീസീടാക്കുന്ന തൊഴിലധി ഷ്ഠിത കോഴ്സുകൾക്ക് പകരം സ്റ്റൈപ്പന്റ് നൽകി സൌജന്യ തൊഴിലധി ഷ്ഠിത കോഴ്സുകൾ ഐ എച്ച് ആർ ഡി വഴി നടപ്പാക്കാൻ ഗവൺമെന്റ് പദ്ധതി ആവിഷ്കരിച്ചതായി അദ്ദേഹം തവനൂർ അന്ത്യാളംകുടത്ത് പറഞ്ഞു

എച്ച് ആർ ഡി എക്സ്റ്റൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്തി

കെ ബാലൻ ഒറ്റപ്പാലത്ത് അറിയിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികജാതി വികസന ഓഫീസ് കെട്ടിടവും സിറ്റിസൺ ഇൻഫർമേഷൻ കേന്ദ്രവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ പ്രഖ്യാപനവും മന്ത്രി നടത്തി ദർവ്വെട്ടറ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ സമദർശൻ പരി പാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് മന്ത്രി ജെ മേഴ്സിക്കുട്ടി യമ്മ നിർവഹിച്ചു ഇന്ത്യയിലെ വർദ്ധിച്ചുവരുന്ന ദലിത് പീഡനങ്ങൾ വേദനി പ്പിക്കുന്നതായും ഗാന്ധിയൻ സമദർശനത്തിന് രാജ്യത്ത് പ്രസക്തി വർദ്ധി ച്ചുവരികയാണെന്നും മന്ത്രി പറഞ്ഞു രുട്ട്ട്ട്ട്ട്ട്ട്ട്ട ഗവൺമെന്റ് സംരക്ഷിച്ചുവരുന്ന സ്മാരകങ്ങളുടെ പ്രൌഢിയും തനി മയും വീണ്ടെടുക്കുമെന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കണ്ണൂരിൽ പറഞ്ഞു സംരക്ഷിതമായി പ്രഖ്യാപിച്ച പതിനഞ്ച് സ്മാരകങ്ങളിൽ മൂന്നെണ്ണം കണ്ണൂ രിലാണെന്ന് മന്ത്രി പറഞ്ഞു കന്റോൺമെന്റ് സെന്റ് ജോൺസ് സി

ഐ പള്ളിയുടെ സംരക്ഷണ പ്രവൃത്തി ഇന്ന് ഉദ്ഘാടനം ചെയ്യുമെന്നും കടന്ന പ്പള്ളി അറിയിച്ചു

സൈലന്റ് വാലി ദേശീയ പാർക്കിന്റെ നേതൃത്വത്തിലാണ് ഒക്ടോബർ എട്ടുവരെ വനൃജീവി വാരാചരണം സംഘ ടിപ്പിക്കുന്നത് മന്ത്രി കെ രാജു ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും

ആലപ്പുഴ പൂന്തോപ്പ് സ്വദേശി ഷിജു വർഗീ സ് കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി ബഷീർ എന്നിവരാണ് മരിച്ചത്

ആഡംബര വാഹനത്തിൽ സഞ്ചരിച്ചവരാണ് പിടിയി ലായത്

സംസ്ഥാന പ്രസിഡന്റ് കെ ജെ വർഗീസ് ഉദ്ഘാടനം ചെയ്യും

ഒക്ടോ ബർ എട്ടുവരെ നവരാത്രി മണ്ഡപത്തിൽ ബൊമ്മക്കൊലു ഉണ്ടായിരിക്കും